നഗരസഭാ പരിധിയിലെ പാളയം ചാല മാർക്ക്ക്കുകളടക്കമുള്ള പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ കടകൾ ി തുറ്ന്ന് പ്രവർത്തിക്കുന്നത് അമ്പത് ശതമാനമായി കുറ്റയ്ക്കും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ ഈ കേന്ദ്രങ്ങളിലെ കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ കീഴിയു

തുറന്നു പ്രവർത്തിക്കുന്ന വൃാപാര സ്ഥാപനങ്ങൾ കർശനമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് അറിയാൻ റെയ്ഡ് നടത്തും കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ കൃത്യമായും സാമൂഹിക അകലം പാലിക്കണം

രോഗികൾക്ക് കോവിഡ് ഭീതിയില്ലാതെ ചികിത്സ ലഭ്യമാക്കാനും ജീവനക്കാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുമാണ് പ്രത്യേക ചികിത്സാകേന്ദ്രം സജ്ജമാക്കിയതെന്ന് മന്ത്രി കെ

പുതിയ സംവിധാനം വഴി കോവിഡ് രോഗികളും മറ്റു രോഗികളും തമ്മിലുള്ള സമ്പർക്കം ഒഴിവാക്കാനാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി